മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആംഗ്ർ നാനാ പട്ടോളി നിയമസഭാ സ്പീക്കറായി ഐക്കുണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു

യാത്രക്കാർക്കും ഇന്നുമുതൽ ഹെൽമറ്റ് നിർബന്ധം

മികച്ച വൻകിട കമ്പനികൾക്ക് നൽകുന്ന ടൈം അവാർഡ്സ് ഫോർ കോർപ്പറേറ്റ് എക്സ്ലൻസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രീ

രാജ്യത്തെ സാമ്പത്തികമാന്ദ്യം താൽക്കാലികമാണ് ഇന്ത്യൻ വിപണിയ്ക്കും വൃവസായരംഗത്തിനും ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

എ കിസാൻ കാത്തേടൂർ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച്തോടെയാണ് ഇത്

ശിവസേന കോൺഗ്രസ് എൻ സി

വിദർഭ മേഖലയിലെ സകോളി മണ്ഡലത്തിൽ നിന്നുള്ള എം

ഉദ്ദവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാ വികാസ് അഘാഡി ഗവൺമെന്റ് ഇന്നലെ നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

ബിജെപിയുടെ മുതിർന്ന പാർട്ടി നേതാക്കൾ ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡ് വികാസ് മോർച്ച ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ്സ് യൂണിയൻ എന്നിവർ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയുന്നു് കോൺഗ്രസിനെ കൂടാതെ ആർ ജെഡിയുടെ നേതാക്കളും ഇടതുപക്ഷ പാർട്ടികളും വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി പൊതുയോഗങ്ങൾ നടത്തു്

മാവോയിസ്റ്റ് ഭൂീഷണി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്

ഗുരുതരവും ഹീനവുമായ കുറ്റകൃത്യങ്ങളിൽ കാര്യക്ഷമവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്താൻ ഇത് സഹായിക്കും ഇതിനായി ന്യൂഡൽഹിയിലെ ഡയറക്ട്രേറ്റ് ഓഫ് ഫോറസിക് സയൻസ് സർവ്വീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹോവിയറൽ സയൻസ് ഗുജറാത്തിലെ ഫോറസിക് സയൻസ് സർവ്വകലാശാല എന്നീ സ്ഥാപനങ്ങൾ തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു

അതേസമയം ഇടനിലക്കാരനായ രഞ്ജിത് ബിന്ദ്ര റിങ്കു ദേശ്പാണ്ഡെ എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു

എസ് തീവ്രവാദ ബന്ധമുന്നെ റിപ്പോർട്ടിന്റെ പേരിൽ തമിഴ്നാട്ടിലെ രണ്ടിടങ്ങളിൽ എൻ

എറണാകുളം പ്രത്യേക എൻ

കേരളത്തിലും തമിഴ്നാട്ടിലും ഐ എസ് ആശ്ച്യുങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളായ അലാപ്പൂദ്ദീൻ സർഫുദ്ദീൻ എന്നിവരുടെ വീടുകളിലായിരുന്നു ഒയ്യ്ഡ്

താഴ്ന്ന സ്ഥലങ്ങളിലെയും റോഡിലെയും വെള്ളക്കെട്ട് കാരണം ഗതാഗത കുരുക്കും രൂക്ഷമാണ് കാരക്കൽ ദക്ഷിണ കർണാടക കേരളം മാഹി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും രണ്ടു ദിവസമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്

അറബിക്കടലിൽ ലക്ഷദ്വീപിനടുത്തായി ന്യൂനമർദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മീൻ പിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

വി ക്കെതിരായ പോരാട്ടത്തിൽ ഏർപ്പെടാനും രോഗബാധിതർക്ക് പിന്തുണ നൽകാനും എയിഡ്സ് ദിനാചരണം അവസരമൊരുക്കുന്നു

എസ് എഫ് ദിനം ഇന്ത്യയുടെ അതിർത്തി രക്ഷാ വിഭാഗമായ ബി എസ്

അതിർത്തികൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുക അതിർത്തി വഴിയുള്ള നിയമ്പ്രിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക ഇന്ത്യയിലേക്കുള്ള അനധികൃത് കുടിയേറ്റം തടയുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് അതിർത്തി രക്ഷാ സേനക്കുള്ളത്

വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ വേണ്ടത്ര ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല

എസ്

രൂപീകരിക്കപ്പെട്ടത്

എസ്

ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്നതിന് ബി

എഫ് പുലർത്തുന്ന ജാഗ്രത പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ധീരരും കാരുണ്യവാൻമാരുമായ നാഗാ ജനത കൂടുതൽ പുരോഗതി പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു

എസ് ഭീകരനാണ് കൊല നടത്തിയതെന്ന് സംഘടന അമാഖ് വാർത്താ ഏജൻസിയിലൂടെ അറിയിച്ചു ഏഴ് വർഷംമുൻപ് ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച ഉസ്മാൻ ഖാൻ ആണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു

കുറ്റം ആവർത്തിച്ചാൽ ആയിരം രൂപയാണ് പിഴ അതിനിടെ വാഹനപരിശോധന സംബന്ധിച്ച് ഡി ജി

മറവിലും തിരിവിലും വാഹനപരിശോധന പാടില്ലെന്ന് ഡിജിപിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു

എസ് എസ് ഗുരുകുലം ഹയർ സെക്കന്ററി സ്കൂളാണ് സ്കൂൾ തലത്തിൽ നിലവിൽ ഒന്നാമത് കഴിഞ്ഞ വർഷം ആലപ്പുഴയ്ടിൽ ന്നട്ന്ന കലോത്സവത്തിൽ പാലക്കാടായിരുന്നു സ്വർണ്ണൂക്പ്പ് നേടിയത് അതുകൊു തന്നെ പാലക്കാട് ഇത്തവണയും വിജയം ക്കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കലോത്സവം ഇന്ന് സമാപിക്കും

അഞ്ച് കളികളിൽ എട്ട് പോയിന്റുമായി ഗോവ അഞ്ചാമതും ബ്ലാസ്റ്റേഴ്സ് ഒൻപതാമതുമാണ്

ഇന്നലെ നടന്ന സെമിഫൈനലിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് സൌരഭ് ഫൈനലിൽ കടന്നത് വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ മുൻ ദേശീയ ചാമ്പ്യൻ ഋതുപർണദാസ് പുറത്തായി

ടേക്ക് ഓഫ് ചെയ്തയുടനെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ്അറിയിച്ചു